പ്രചാരണം ഊർജ്ജിതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമബംഗാളിലെ പുരുളിയയിൽ പൊതു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു

പ്രമുഖ നേതാക്കളും സ്ഥാന്നാർത്ഥികളും പ്രചാരണത്തിൽ

ഇൻഷറൻസ് ഭേദ്ഗ്തി ബിൽ രാജ്യസഭ ഇന്ന് ചർച്ച ചെയ്യും ന് ധനവിനിയോഗ ബ്ലിൽ ലോക്സഭ പരിഗണിക്കും

പരിഗണനാ വിഷയമെന്ന് റെയിൽവേ മന്ത്രി പിയൂഷ് ഗോയൽ

പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമബംഗാളിലെ പുരുളിയയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു പശ്ചിമബംഗാളിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്ത് ബി ജെ

അസമിലും തെരഞ്ഞെടുപ്പ് പ്പൊതു്ടുയോഗങ്ങളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും കഴിഞ്ഞ് ് അഞ്ച് വർഷം അസമിൽ വിവിധ മേഖലകളിൽ വികസ്നമുണ്ടായെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു തുടർഭരണം ന്റൽകുണമെന്നാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ജനങ്ങളോടുള്ള് അഭ്യർത്ഥനയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

മുതിർന്ന ബി ജെ

നേതാവും മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുമായ ശിവരാജ് മുതിർന്ന സിങ് ചൌഹാൻ കിഴക്കൻ മെദിനിപൂരിലെ മൊയ്ന നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന റാലിയെ അഭിസംബോധന ചെയ്യും ഉച്ചകഴിഞ്ഞ് കെജൂരിയിൽ നടക്കുന്ന മറ്റൊരു സമ്മേളനത്തിലും അദ്ദേഹം അധ്യക്ഷത വഹിക്കും നടനും ത്രിണമുൽ കോൺഗ്രസ് എം

യുമായ ദേവ് കെജൂരിയിലെ മഹിഷാധലിൽ പൊതുജനറാലിയെ അഭിസംബോധന ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി മമത ബാനർജി ഗർബേതാ കേഷിയാരി ഖരഗ്പൂർ എന്നീ മൂന്നിടങ്ങളിൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും

ജെ

നേതാവും കേന്ദ്ര മന്ത്രിയുമായ വി

സിംഗ് ഇന്നലെ രാമനാഥപുരത്ത് തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു

എൽഡിഎഫ് യുഡിഎഫ് എൻ ഡി എ മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് കൺവൻഷനുകൾ സംസ്ഥാനത്തൊട്ടാകെ പുരോഗമിക്കുകയാണ് പത്രികാ സമർപ്പണം നാളെ പൂർത്തിയായ ശേഷം ശനിയാഴ്ച ഇവയുടെ സൂക്ഷ്മ പരിശോധന നടക്കും

ഡി

ഡി

ഡി എ മുന്നണികളിലെ നിരവധി പ്രമുഖർ ഇതിനകം പത്രിക സമർപ്പിച്ചു

മുഖ്യമന്ത്രി പിണറായി വിജ്യൂൻ മലപ്പുറത്ത് മഞ്ചേരിയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ ് പ്പങ്കെടുത്തു ് സാമൂഹികനീതിയിൽ അധിഷ്ഠിതമായ വികസന്മാണ് സർക്കാർ നടപ്പാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പൂർക്കീഫ്ബിയുടെ പ്രവർത്തനം എല്ലാ മേഖലകളിലും നല്ല നിൽയ്ടിൽ പ്രതിഫലിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

എം നിലപാട് തെറ്റായിപ്പോയെന്ന് പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറുണ്ടോ് എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇനിയും വിശ്വാസി സമൂഹത്തെ വഞ്ചിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാർ സൂപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്താൻ തയ്യാറുണ്ടോ എന്നും ചെന്നിത്തല ചോദിച്ചു

സ്ഥാനാർത്ഥി സി

ഡി എഫ് സ്ഥാനാർത്ഥി ഇല്ലിക്കൽ ആഗസ്തി ഇന്ന് പത്രിക നൽകി

എ യുടെ തലശ്ശേരി മണ്ഡലം സ്ഥാനാർത്ഥി എൻ ഹരിദാസ് മട്ടന്നൂർ സ്ഥാനാർത്ഥി ബിജു ഏളക്കുഴി എന്നിവരും ഇന്ന് പത്രിക നൽകും

കൂടുതൽ വിവരങ്ങളുമായി ആതിർ

വികസന പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണെന്ന് ഹബീബ്ഗഞ്ച് ഗാന്ധിനഗർ റെയിൽവേ സ്റ്റേഷനുകളുടെ പ്രവർത്തന പുരോഗതി അവലോകനം ചെയ്യവെ ശ്രീ പിയുഷ് ഗോയൽ അറിയിച്ചു ബഹുമാതൃകാ ഹബ്ബുകൾ ഉൾപ്പെടെ വിമാനത്താവളത്തിന് സമാനമായ രീതിയിലാണ് സ്റ്റേഷനുകൾ ആധുനികവത്ക്കരിക്കുന്നത് സുരക്ഷയ്ക്കും യാത്രക്കാരുടെ സൌകരൃത്തിനും മികച്ച സജ്ജീകരണങ്ങളാണ് മധ്യപ്രദേശിലെ ഹബീബ്ഗഞ്ച് സ്റ്റേഷനിൽ ഒരുക്കുന്നത് റെയിൽവേപാതയ്ക്ക് മുകളിലായി ഹോട്ടൽ സൌകര്യം ഒരുക്കുന്ന രാജ്യത്തെ ആദ്യ റെയിൽവേ സ്റ്റേഷനായരിക്കും ഗുജറാത്തിലെ ഗാന്ധിനഗർ സ്റ്റേഷൻ ന്യൂഡൽഹി സഫ്ദർജംഗ് നാഗ്പൂർ അയോധ്യ സബർമതി തുടങ്ങിയ സ്റ്റേഷനുകളിലും ആധുനികവത്ക്കരണ നടപടികൾ പുരോഗമിക്കുന്നു

ധനവിനിയോഗ ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും ജമ്മുകശ്മീർ പുതുച്ചേരി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് വേണ്ടിയുള്ള ധനാഭ്യർത്ഥന സഭ ചർച്ച ചെയ്യും

വിശദാംശങ്ങളുമായി പ്രവീൺ കുമാർ

കോവിഡ് രോഗമുക്തരുടെ എണ്ണത്തിലും വർധന

എം ആർ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പരിമിതപ്പെടുത്തുക ജനങ്ങളോട് പുനക്രമീകരിക്കുക പുനചംക്രമണം നടത്തുക വീണ്ടെടുക്കുക എന്നതാവട്ടെ പുതിയ മന്ത്രമെന്ന് ജാവ്ദേക്കർ ട്വിറ്ററിൽ കുറിച്ചു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

സഖ്യത്തിന്റെ പുതിയ ഭേദഗതി നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇറ്റലിയുടെ പ്രവേശനം

ഡോളർ അനുവദിച്ച് ലോക ബാങ്ക്